പാർലമെന്റിന്റെ ശീതകാലസമ്മേളനത്തിന് മുന്നോടിയായി ലോക്സഭാ സ്പീക്കർ ഓം ബിർല വിളിച്ചു ചേർത്ത സർവ്വക്ഷിയോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു

വൈകാരികവും പ്രതിഫലം വാങ്ങിയും വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതാണ് മാധ്യമരംഗം നേരിടുന്ന ഉപരാപ്രഷ്ടപതി ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് എം

പാർലമെന്റ് നടപടികളുടെ സുഗമമായ നടത്തിപ്പിൽ എല്ലാ കക്ഷികളിലേയും അംഗങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കുവാനാണ് ലോക്സഭാ സ്പീക്കർ സർവ്വകക്ഷിയോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് രാജ്യസഭാ ചെയർമാൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡുവും നാളെ സർവ്വകക്ഷിയോഗം വിളിച്ചിട്ടുണ്ട്

പ്ര ഇത് ഗുരുതരമായ അഴിമതിയാണെന്ന് ശ്രീ

കൂടുതൽ വിവരങ്ങളുമായി വിനോദ് കുമാർ

വെങ്കയ്യനായിഡു പറഞ്ഞു മാധ്യമപ്രവർത്തനം ഒരിക്കലും ദുരുപയോഗം ചെയ്യാൻ പാടില്ല വ്യാപാര ഗ്രൂപ്പുകളും രാഷ്ട്രീയ കക്ഷികളും തങ്ങളുടേതായ വാർത്താ ചാനലുകൾ സ്ഥാപിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരവരുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ഒരുവിധത്തിലും മാധ്യമങ്ങൾ ഉപയോഗിക്കരുതെന്നും ഉപരാഷ്ട്രപതി പർണ്ഞു പ്രക്ഷുബ്ദകരമായ വാർത്തകൾ സൃഷ്ടിക്കുക എന്നുള്ളത് ഇന്ന് സർവ്വ സാധാരണമായിരിക്കുകയാണ്

ഈ വർഷത്തെ രാജാറാം മോഹൻ റായ് അവാർഡിന് രാജസ്ഥാൻ പത്രികയുടെ ചെയർമാനും പ്രമുഖ പത്രപ്രവർത്തകനുമായ ഗുലാബ് കോത്താരി അർഹനായി തെറ്റായ വാർത്തകളും പണം നല്കി പ്രസിദ്ധീകരിക്കുന്ന വാർത്തകളും വിധേനയും ഏത് ഒഴിവാക്കേണ്ടതാണെന്ന് സംസാരിക്കവെ വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പു മന്ത്രി പ്രകാശ് ജാവ്ദേകർ പറഞ്ഞു ന്യൂസ് ഡസ്ക് ആകാശവാണി

ശേഷന്റെ നാമധേയത്തിൽ തെരഞ്ഞെടുപ്പ് സംബന്ധമായ വ്യത്യസ്ത പഠന ശാഖകളിലെ ഗവേഷണത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക ചെയർ രൂപീകരിക്കും

മുൻ മതെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ

തെരഞ്ഞെടുപ്പ് സംബന്ധമായ പഠനങ്ങൾക്ക് വേണ്ടി യുവഗവേഷകർക്കും സർവ്വകലാശാല അധ്യാപകർക്കും പ്രോത്സാഹനം നല്കുന്നതിനു വേണ്ടിയാണ് ടി

ശേഷന്റെ പേരിൽ ചെയർ സ്ഥാപിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുടെ സംസ്കാരം കല പ്രർണ്ണിജ്യം പാചകവൃത്തി എന്നിവ ഉൾപ്പടെയുള്ളവ മേളയിൽ പ്രദർശിപ്പിക്കും

വോട്ടെടുപ്പിനിടെ അങ്ങിങ്ങ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് മുൻ പ്രതിരോധ സെക്രട്ടറി ഗോദബയാ രാജപക്സെയും മന്ത്രി സജിത് പ്രേമദാസയും തമ്മിലാണ് പ്രധാന മത്സരം

നിലവിലെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ മത്സരിക്കാത്ത ആദ്യ തെരഞ്ഞെടുപ്പാണ് ശ്രീലങ്കയിൽ ഇന്ന് നടന്നത്

ഇന്ന് പ്രത്യേക പൂജകൾ ഉ ായിരിക്കില്ല പ്രധാന വഴിപ്പാട്ടായ നെയ്യഭിഷേകം നാളെ മുതൽ ആരംഭിക്കും

ശബരിമലയിലെ പുതിയ മേൽശാന്തിയായി എ

സുധീർ നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തിയായി എം

പുതിയ മേൽശാന്തിയായിരിക്കും നാളെ വൃശ്ചികപുലരിയിൽ നട തുറക്കുന്നത്

ഉപഭോക്തൃകാരൃ മന്ത്രി രാംവിലാസ് പാസ്വാൻ ഇത് സംബന്ധിച്ച പട്ടിക ഇന്ന് പുറത്തിറക്കി

നിയമനങ്ങൾക്ക് പിന്തുടരുന്ന അതേ രീതി ഉദ്യോഗക്കയറ്റത്തിനും സീനിയോറിറ്റിക്കും മാനദണ്ഡമാക്കാൻ പാടില്ലെന്ന് ഇത് സ്ട്രബ്ദ്ധിച്ച് കേസ് പരിഗണിച്ച ജസ്റ്റിസുമാരായ എം

രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിൽ ഉഗാണ്ടൻ വിമതരാണ് ആക്രമണം നടത്തിയത് അലൈയ്ഡ് ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിമത നീക്കത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കോങ്കോയിലെ സൈനൃം കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നു